സന്ദർശനത്തിന് നാളെ തുടക്കം

തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്നവസാനിക്കും

കേന്ദ്ര ആരോഗ്യമന്ത്രാലയം

രാജ്യത്ത് കോവിഡ് വ്യാപനത്തിൽ വർദ്ധന

മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിൽ കൂടുതൽ കേസുകൾ

കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു വിനോദ്

നയതന്ത്ര അയൽരാജ്യ ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഇത് നാളെ ധാക്കയിൽ എത്തുന്ന പ്രധാനമന്ത്രിയെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വിമാനത്ത്ാവളത്തിൽ സ്വീകരിക്കും

ഷെയ്ഖ് ഹസീനയുമായി പ്രത്യേക കൂടിക്കാഴ്ചയും ശ്രീ നരേന്ദ്രമോദി നടത്തും

ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെയും ബംഗ്ലാദേശ് സ്വാതന്ത്ര്യലബ്ധി ആഘോഷങ്ങളുടെ സമ്ാപന സമ്മേളനത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായിരിക്കും

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് കൂടുതൽ ഉറപ്പും ആഴവും നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി ഹർഷ്വർദ്ധൻ ശൃംങ്ക്ള പറഞ്ഞു

ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി പ്രധാനമന്ത്രിയുടെ ദ്വിദിന സന്ദർശനത്തിനിടെ വിവിധ കരാറുകളിലും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒപ്പുവയ്ക്കും

ത്രിണമുൽ ് കോൺഗ്രസ് ഭാരതീയ ജനതാ പാർട്ടി ് കോൺഗ്രസ് ഇടതുപക്ഷം തുടങ്ങിയ എല്ലാ പാർട്ടികളും പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിനം ശക്തമായ പ്രചാരണമാണ് നടത്തുന്നത്

ഡി

പ്രചാരണത്തിന്റ് ദേശീയ നേതാക്കൾകൂടി എത്തിയതോടെ സംസ്ഥാനമാകെ തെരഞ്ഞെടുപ്പു ചൂടിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എൻഡിഎയ്ക്ക് വേണ്ടി വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രചാരണത്തിന് കേരളത്തിലെത്തും

എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പൊളിറ്റ്ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് സി

ജനറൽ സെക്രട്ടറി ഡി രാജ തുടങ്ങിയവരാണ് എൽ ഡി എഫിനുവേണ്ടി രംഗത്തുള്ളത് രാഹുൽഗാന്ധി എ കെ ആന്റണി രൺദീപ്ദിങ് സൂർജെവാല തുടങ്ങിയ ദേശീയ നേതാക്കളാണ് യു ഡി എഫിന്റെ പ്രചാരണത്തിന് ചുക്കാൻപിടിക്കുന്നത്

ഇവരുടെ പട്ടിക പോളിംഗ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ കക്ഷികൾക്കും നൽകും വോട്ട് ചെയ്ത് വിരലിലെ മഷി ഉണങ്ങിക്കഴിഞ്ഞ് മാത്രമേ സമ്മിതിദായകരെ ബൂത്ത് വിടാൻ അനുവദിക്കാവൂ എന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നിർദ്ദേശം നൽകി

പ്പോളിങ് ഉദ്യോഗസ്ഥർ സന്ദർശിക്കുന്ന ദിവസവും സമയവും എസ്

ഓരോ ദിവസവും വോട്ട് രേഖപ്പെടുത്തി ലഭിക്കുന്ന കവറുകളുടെ എണ്ണം അസിസ്റ്റന്റ് റിട്ടേണിങ് ഓഫിസർ ജില്ലാ കളക്ടറെ അറിയിക്കുകയും കളക്ടർ ഇത് ഇലക്ഷൻ കമ്മിഷനു കൈമാറുകയും ചെയ്യും

പശ്ചിമബംഗാൾ അസം കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഏപ്രിൽ എട്ട് വരെ ് നിശ്ചയിച്ചിരുന്ന സമ്മേളനം വെട്ടിചുരുക്കിയത്

ബില്ലിന്മേലുള്ള ചർച്ച രാജ്യസഭയിൽ പുരോഗമിക്കുകയാണ്

രാജ്യത്ത് വാക്സിൻ ലഭ്യതയിൽ കുറവുണ്ടായിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ഈ ഘട്ടത്തിൽ അർഹരായവർക്കെല്ലാം വാക്സിൻ നൽകി വരികയാണ് വാക്സിൻ ലഭ്യതയിൽ കുറവുണ്ടെന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളും ഊഹാപോഹങ്ങളും വിശ്വസിക്കരുതെന്നും ആരോഗ്യമന്ത്രാലയം ടിറ്ററിലൂടെ അറിയിച്ചു

വാക്സിൻ വിതരണം സംബന്ധിച്ച നടപടി മന്ത്രാലയം നിരന്തരം വിലയിരുത്തുന്നുണ്ട് ഏറ്റവും ആവശ്യമുള്ളവർക്ക് ആദ്യം വാക്സിൻ ലഭ്യമാക്കുന്ന നടപടിയാണ് പുരോഗമിക്കുന്നതെന്നും കേന്ദ്ര ആരോഗൃ മന്ത്രാലയം അറിയിച്ചു

കോവിൻ സിസ്റ്റത്തിൽ രജിസ്ട്രേഷൻ നടത്തണം അതേ ദിവസം തന്നെ വാക്സിനേഷൻ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം

ആരോഗ്യ മന്ത്രാലയത്തിന്റെയും കുടുംബൂക്ഷേമ മന്ത്രാലയത്തിന്റെയും കണക്കനുസരിച്ച് വാക്സിനേഷ്ട് സ്വീകരിച്ചവരുടെ എണ്ണത്തിലും സംസ്ഥാനം ഒന്നാമതാണ്

കോവിഡ് വ്യാപനം കൂടുതലായി റിപ്പോർട്ട് ചെയ്ത ബേതുൽ ചിദ്വാര രത്ലം ഖർഗോൺ എന്നിവിടങ്ങളിലാണ് ലോക്ഡൌൺ പ്രാബലൃത്തിൽ വരുന്നതെന്ന് മധ്യപ്രദേശ് സർക്കാർ അറിയിച്ചു

ചെന്നൈ തുറമുഖത്ത് നടന്ന ചടങ്ങിൽ സംയുക്തസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് കപ്പലിന്റെ പേര് അനാച്ഛാദനം ചെയ്തു

ക്യ്യയിലെ ഏറ്റവും വലിയ തുലിപ് പൂന്തോട്ടമാണിത്